ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ചെന്നൈ സൂപ്പർകിംഗ്സ് ഇന്ന് മുംബൈ ഇന്ത്യൻസിനെ നേരിടും ലോക് സഭാ തെരഞ്ഞെടു പ്പിന്റെ ആറാം ഘട്ട വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും

കനത്ത സുരക്ഷയിൽ നടക്കുന്ന വോട്ടെടുപ്പ് വൈകീട്ട് ആറിന് അവസാനിക്കും

ഡൽഹിയിൽ ബിജെപിയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ത്രികോണമത്സരമാണ് നടക്കുന്നത്

തൃണമൂൽ കോൺഗ്ര സിന് എട്ടും കോൺഗ്രസിന് രണ്ടും സമാജ്വാദിപാർട്ടി എൽ ജെ പി എന്നിവയ്ക്ക് ഓരോ സീറ്റും ലഭിച്ചു

പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധൃക്ഷൻ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ സജീവമായി പ്രചാരണരംഗത്തുണ്ട്

അടുത്ത ഞായറാഴ്ചയാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ്

തമിഴ്നാട്ടിലെ വെല്ലൂരിൽ വോട്ടിന് പണം നൽകിയതായി കണ്ടെത്തി യതിനെ തുടർന്ന് വോട്ടെടുപ്പ് റദ്ദാക്കിയിരിക്കുകയാണ്

ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കൾ ജ നങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് വോട്ടെണ്ണൽ പ്രക്രിയ കാണാനും മനസ്സിലാക്കാനും ഇവിടെ സൌകര്യമുണ്ടാ വും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ യു മായി കേന്ദ്ര തെരഞ്ഞെ ടുപ്പ് കമ്മീ ഷൻ വീഡിയോ കോൺഫറൻസിംഗ് വഴി നടത്തിയ ചർച്ചയി ലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത് വോട്ടെണ്ണൽ പ്രക്രിയ സുരക്ഷാ സംവിധാനങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവ സംബന്ധിച്ച ഒരുക്ക ങ്ങളും കമ്മീഷൻ വിലയിരുത്തി തപാൽ ബാലറ്റ് സർവീസ് ബാലറ്റ് തുടങ്ങിയവ എണ്ണുന്നത് സംബ ന്ധിച്ചും വിശദമായി ചർച്ച ചെയ്തു സംസ്ഥാനത്തെ റിട്ടേണിംഗ് ഓഫീസർമാർക്കും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കും പരിശീലനം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച കേരളത്തിലെത്തും കണ്ണൂർ ജില്ലയിലെ ധർമ്മടം മണ്ഡലത്തിൽ കള്ള വോട്ട് ചെയ്തുവെന്ന പരാതിയിൽ ജില്ലാകലക്ടർക്ക് മുമ്പാകെ ഹാജരാകാൻ കൂടുതൽ പേർക്ക് നോട്ടീസയ ച്ചു

കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരുണ്ടായ വരും ഇത്തവണത്തെ പ്രാഥമിക ലിസ്റ്റിലുണ്ടായിരുന്ന വരുമാണ് അവസാനഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടതെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കി

തദ്ദേശ ഭരണ വകുപ്പുകളുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്തിൽ ഇന്നലെ ആരം ഭിച്ച ശുചിത്വ കാമ്പയിനിൽ ജനപ്രതിനിധികളും കുടും ബശ്രീ പ്രവർത്തകരും തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്ത കരും ആശാപ്രവർത്തകരുമുൾപ്പെടെ ഒട്ടേറെപേർ പങ്കാ ളികളായി

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു മഴക്കാല പൂർവ് ശുചീകരണ യജ്ഞത്തിന്റെ ജില്ലാതല ഉദ് ഘാടനം നിർവഹിക്കുകയായിരുന്നു അവർ ശുചിത്വമിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജില്ലാ ഭരണകൂടം എന്നിവയുടെ നേതൃത്വത്തിൽ ജനപങ്കാളിത്തോടെ ജില്ലയിൽ വ്യാപകമായി ശുചീകരണം നടത്തി

എഴുന്നള്ളിപ്പിൽ ആനയുടെ പത്ത് മീറ്റർ അക ലത്തിൽ മാത്രമെ ഭക്തർക്ക് നിൽക്കാൻ നിർദ്ദേശമുള്ളൂ ഏറെ വിവാദങ്ങൾക്ക് ഒടുവിലാണ് തെച്ചിക്കോട്ട്കാവ് രാമചന്ദ്രൻ എന്ന് ആന പൂരം ചടങ്ങിൽ എത്തുന്നത് തൃശൂർ പൂരത്തിന്റെ മുന്നോടിയായി ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു വൈകീട്ട് ഏഴരയ്ക്ക് തിരു വമ്പാടി സംഘം തിരികൊളുത്തിയതോടെയാണ് സാമ്പി ളിന് തുടക്കമായത് എട്ടരയോടെ പാറമേക്കാവ് സംഘം വർണ്ണങ്ങൾ പുറത്തെടുത്തു

ഇലഞ്ഞിത്തറ മേളം നടക്കുന്ന വടക്കു ന്നാഥ ക്ഷേത്രത്തിലേയ്ക്ക് ഓരോരുത്തരേയും പരിശോ ധിച്ചാണ് പ്രവേശിപ്പിക്കുക

ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അമേരിക്കയിലാണ് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃ ദിനാചരണത്തിന് തുടക്കമിട്ടത്

ഇന്ന് ലോക നഴ്സസ് ദിനം

അന്താരാഷ്ട്ര നഗ്സസ് ദിനാചരണത്തിന്റെ സംസ്ഥാ നതല ഉദ്ഘാടനം ഇന്ന് കണ്ണൂരിൽ നടക്കും രാവിലെ മന്ത്രി കെ കെ ശൈലജ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

ഇതിൽ ചെന്നൈ സൂപ്പർകിംഗ്സിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിലെത്തി യത് അവസാന കാളിഫയറിൽ ഡൽഹി ക്യാപ്പി റ്റൽസിനെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് ചെന്നൈ ഫൈനലിൽ പ്രവേശിച്ചത് കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കോഴിക്കോട്ട് ഇന്ന് രണ്ടാം സെമിയിൽ ഗോകുലം കേരള എഫ്

ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ എഫ്

കേരളയെ ഏകപക്ഷീയമായ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യൻ നേവി ഫൈനലിൽ പ്രവേശിച്ചു

രണ്ട് കിലോ കൊക്കെയ്നും പിടിച്ചെടുത്തു

ലലലലലല വൻകിട ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് ചികിത്സയും അത്ഭുത മരുന്ന് വിൽപ്പനയും നടത്തുന്ന സംഘത്തെ കാഞ്ഞങ്ങാട്ട് പ്പിടികൂടി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പും ആരോഗൃവകുപ്പും ചേർന്ന് നടത്തിയ പരിശോധനയി ലാണ് ആറംഗസംഘത്തെ പിടികൂടിയത്

ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോ ചിച്ചു

മറ്റത്തിപാറ പുതിയമഠം ജൻസ് മകൻ അഗസ്റ്റൊ എന്നിവരാണ് മരി ച്ചത് വേമ്പനാട്ട് കായലിൽ ആലപ്പുഴ മുഹമ്മയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു പട്ടാറ കിഴക്കേ വെളി ജിയോ മോൻ കാട്ടിപ്പറമ്പിൽ നെബിൻ എന്നിവരാണ് മരിച്ചത്

പത്തനംതിട്ട ആറന്മുളയിൽ ഹിന്ദു ഐക്യവേദി സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തിൽ മുഖൃപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖൃത്തിൽ കോഴിക്കോട് ആരം ഭിച്ച അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഉദ് ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോക സിനിമകൾ കണ്ട ആളുകളിൽ നിന്നേ മികച്ച സിനിമകൾ ഉണ്ടാകൂവെന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു

കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കുട്ടിയെ സർജറിക്ക് സൌകര്യമുള്ള തിരുവല്ല ബിലീവിയേഴ് സ് ചർച്ച് ആശുപത്രിയിലേക്ക് ഇന്നലെ മാറ്റി ഇരവികുളം ദേശീയോദ്യാനത്തിൽ വരയാടു കളുടെ കണക്കെടുപ്പ് തുടങ്ങി തൃശൂർ ഫോറസ്റ്റ് ആന്റ് വെറ്റിനറി കോളേജിന്റെയും വിവിധ എൻജിഒ കളുടെയും സഹകരണത്തോടെ വനം പന്യ ജീവി വകുപ്പാണ് കണക്കെടുപ്പ് നടത്തുന്നത് ജി പി ആർ എസ് സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടു ത്തിയാണ് കണക്കെടുപ്പ് വരയാടുകളുടെ ആവാസ മേഖല യായ ഇരവികുളം കൂടാതെ ഇവയുടെ സാന്നിധൃമുള്ള സമീപ പ്രദേശങ്ങളായ മാങ്കുളം മറയൂർ മീശപ്പുലിമല എന്നിവിടങ്ങളിലും ഇതോടൊപ്പം കണക്കെടുപ്പു നടക്കുന്നുണ്ട്

ജില്ലാ ദുരന്ത അതോറിറ്റി യോഗ ത്തിൽ അധൃക്ഷത വഹിക്കുകയായിരുന്നു കലക്ടർ നില വിൽ രണ്ടര ലക്ഷം ക്യൂബിക് മീറ്റർ മണലാണ് പമ്പ യിലും പരിസരത്തും അടിഞ്ഞ് കൂടിയിരിക്കുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം

പ്രളയത്തെ തുടർന്നുണ്ടായ നാശനഷ്ടം വളരെ വലുതാണെങ്കിലും ഭക്തജനങ്ങൾക്ക് സൌകര്യ ത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് ചെയർമാൻ അറിയിച്ചു